ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളെ കുറിച്ചറിയാൻ ഇൻവെസ്റ്റ്മെന്റ് ഗ്രിഡ് പോർട്ടൽ സന്ദർശിക്കാൻ രാഷ്ട്രപതി സിറ്റ്സർലന്റ് കമ്പനികളെ സ്വാഗതം ചെയ്തു

സവാള പൂഴ്ത്തിവയ്ക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്രം കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമായും ഉള്ളി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര കർണ്ണാടക എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നതിന് കാരണമായി അതേസമയം ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള എം

സി പാകിസ്ഥാനിൽ നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും വിതരണക്കാരെ വിലക്കുകയും ഇരുപതിനായിരം ടൺ ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടെണ്ടർ പരിഷ്ക്കരിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഒഴികെയുള്ള ഏത് രാജ്യത്ത് നിന്നും ഉള്ളി ഇറക്കുമതി ചെയ്യാമെന്ന് ടെണ്ടറിൽ പറയുന്നുണ്ട്

സഫ്ദർജംഗ് ആശുപത്രിയിൽ ്യുനാനി മെഡിക്കൽ സെന്ററിന്റെയും സിദ്ധ ക്തിനിക്കൽ റിസർച്ച് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അ്ദ്ദേഹം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഒന്നര ലക്ഷം ്ഹെൽത്ത് ആൻഡ് വെൽനസ്സ് കേന്ദ്രങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു

കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗാങാറിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇ

ഐ സി യോഗത്തിൽ ആശുപത്രികൾക്ക് ത്വത്തിൽ അംഗീകാരം ലഭിച്ചു ഇതുപ്രകാരം ആയുഷ്മാൻ ഭാരത് പാക്കേജ് നിരക്ക് അനുസരിച്ച് പണരഹിതമായ ദിതീയ ത്രിതീയ ആരോഗ്യ രക്ഷാ സേവനങ്ങൾ ഇ

ചെറിയ ഭൂമികൾ സംയോജിപ്പിക്കുന്നതിലും ഭൌതികവും സാമൂഹികവുമായ അടിസ്ഥാന സൌകരൃ വികസനം നടത്തുന്നതിലും സ്വകാര്യ മേഖലയ്ക്ക് സജീവ പങ്കുവഹിക്കാനാ കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലാൻഡ് പൂളിംഗ് എന്ന വിഷയത്തിൽ ഡൽഹി വികസന അതോറിറ്റി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും അനുസരിച്ച് വികസനത്തിനായി ഏത് വലിപ്പത്തിലുമുള്ള ഭൂമിയും ഉടമയ്ക്കോ ഉടമകളുടെ കൂട്ടായ്മയ്ക്കോ നിർദ്ദിഷ്ട ആവശൃത്തിനായി സമർപ്പിക്കാമെന്നും ശ്രീ

ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കും സ്റ്റ്യൂഡൽഹിയിൽ പതിനഞ്ചാമത് ഇന്ത്യ യു

പ്രമുഖ ടെക്സ്റ്റൈൽസ് ഉടമ ബീനാ കണ്ണൻ സമ്മാനിച്ച രണ്ടരലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള സിൽക്കിൽ ചെയ്ത ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന്റെ ഭാഗമായി ഇടതു ത്രീപ്പ്പാദ ബാധിത ജില്ലകളിലും തീരദേശ ജില്ലകളിലും വടക്കു കിഴക്കൻ ്മേഖലയിലും ജമ്മുകശ്മീരിലും കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ നീല്പിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വേണ്ടി നൽകിയ അപേക്ഷകൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞ്ത്തായും ആറ് മാസത്തിനുള്ളിൽ ഇവ പ്രവർത്തന സജ്ജമാകൂമെന്നും ശ്രീ ജാവദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു

മുംബൈയിൽ നെൽകോ മാരിടൈം കമ്മ്യൂണിക്കേഷൻ സർവ്വീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമുദ്ര മേഖലയ്ക്കും നെൽകോ ബ്രോഡ് ബാൻഡ് സേവനങ്ങൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാരിടൈം കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച ധവള പത്രം ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് ധോത്ര പുറത്തിറക്കി ടെലി കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സെക്രട്ടറി അൻഷു പ്രകാശും ചടങ്ങിൽ സംബന്ധിച്ചു

ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും തടസ്സങ്ങളും അവയ്ക്ക് സാധ്യമായ പരിഹാരങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു വ്യവസായത്തിൽ ഗവൺമെന്റ് പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി

രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി

കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് നെഹൽ മോദിയ്ക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതെന്ന് ഇന്റർപോൾ പറഞ്ഞു

ഗവൺമെന്റ് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

വോയിസ് ഉയർന്ന നിലവാരമുള്ള സാങ്കേതികവിദ്യയുടെ കേന്ദ്രമാണ് സ്വിറ്റ്സർലന്റ് മാനവ മൂലധനത്തിന്റെ ക്ടാര്യത്തിൽ ഇന്ത്യ ലോകോത്തര നിലവാരം പുലർത്തുന്നുമുണ്ട് അതി്നാൽ ഇരുരാജ്യങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം മൂലധനം സാങ്കേതികവിദ്യ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ പരസ്പരം സഹായകമാകുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു സ്വിറ്റ്സർലണ്ടും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ ഇടപെടലുകൾ കൂടുതൽ ദൃഢമാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു

നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി ഒടുക്കാതിരിക്കൽ എന്നിവയ്ക്ക് ഭീകരവാദവുമായി ശക്തമായ ബന്ധമുണ്ടെന്നും സ്വിസ് ബാങ്കുകളിലെ നിക്ഷേപ സംബന്ധമായ വിവരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് വൃക്തമാക്കി സ്വിറ്റ്സർലന്റുമായുള്ള നികുതി വിവര കൈമാറ്റം പ്രത്യക്ഷമായ വികസനമാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാര ബന്ധങ്ങൾ ഊർജ്ജിതമാക്കുന്നതിലൂടെയും സാംസ്ക്കാരിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെയും സ്വിറ്റ്സർലന്റും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സജീവമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളും മൂന്ന് കരാറുകളിൽ ഒപ്പുവെച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ഹാൻസ തീരത്തെ പരീക്ഷണ കേന്ദ്രത്തിൽ ലൈറ്റ് കോംപാറ്റ് വിമാനമായ തേജസ് ആദ്യമായി ദ്രുത ഗതിയിലുള്ള കരയ്ക്കിറങ്ങൽ പരീക്ഷണം നടത്തി